സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ മുതിർന്ന ബിജെപി നേതാവ് ജെ

അധ്യക്ഷനായി അമിത്ഷാ തുടരും

ങ്ങ ൽ പതിനേഴാം ലോക്സഭയിലെ പുതിയ എംപിമാരുടെ സത്യ പ്രതിജ്ഞ ഇന്നും തുടരും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രോട്ടം സ്പീക്കർ വിരേ ന്ദ്രകുമാറിനു മുന്നിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ലോക്സഭാ സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും

ഇതു സംബന്ധിച്ച കൂടിയാലോചനകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ് മുതിർന്ന ബിജെപി നേതാവ് ജെ

നദ്ദയെ പാർട്ടി വർക്കിങ് പ്രസിഡണ്ടായി നിയമിച്ചു ഡൽഹിയിൽ ഇന്നലെ ചേർന്ന ബിജെപി പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനം പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ സ്ഥാനത്ത് തുട രും ആദ്യമായാണ് ബിജെപി വർക്കിങ് പ്രസിഡണ്ടിനെ നിയ മിക്കുന്നത് ജൂലൈ ആറിന് തുടങ്ങുന്ന ബിജെപിയുടെ അംഗത്വ യജ്ഞവും സംഘടനാ തെരഞ്ഞെടുപ്പും പൂർത്തി യാകുന്നതു വരെയായിരിക്കും നദ്ദയുടെ നിയമനമെന്ന് പാർട്ടി മുൻ അധ്യക്ഷനും രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിങ് മാധ്യമങ്ങളെ അറിയിച്ചു പാർട്ടിയെ പരമാവധി ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കു മെന്ന് ജെ

നദ്ദ ട്വിറ്ററിൽ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വം എന്നും പ്രചോദനമാണെന്നും ഇത്ത വണ നേടിയ വൻവിജയം അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ജന ങ്ങൾ അംഗീകരിക്കുന്നതിന്റെ തെളിവാണെന്നും നദ്ദ വിലയി രുത്തി ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറ പ്പാക്കുന്ന കേന്ദ്ര നിയമം തയ്യാറാക്കണമെന്ന ആവശ്യം ഗവൺമെന്റ് പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോ

ഇതുമായി ബന്ധപ്പെട്ട നിയമ രൂപീകര

ഇന്ത്യൻ മെഡിക്കൽ അസോ സിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട മാതൃകാ നിയമം മുന്നോട്ട് വെച്ചിട്ടുണ്ട്

പശ്ചിമ ബംഗാളിൽ ഗവൺമെന്റ് ഡോക്ടർമാർ ഒരാഴ്ച യായി നടത്തിവന്ന പണിമുടക്ക് പിൻവലിച്ചു് മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ഡോക്ടർമാരുടെ സംഘടനകൾ ഇന്നലെ വൈകീട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ആശുപത്രികളിൽ ഡോക്ടർമാർക്കു നേരെയുണ്ടാകുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ പത്തിന സുരക്ഷാ നിർദേശങ്ങൾ മുന്നോട്ടുവെക്കുമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിലാണ് സമരം പിൻവലിച്ച തെന്ന് ഡോക്ടർമാരുടെ സംഘടനാ വക്താവ് കൊൽക്കത്തയിൽ അറിയിച്ചു എല്ലാ മെഡിക്കൽ കോളജുകളിലും സുരക്ഷ ക്കായി പൊലീസ് ഓഫീസറെ നിയോഗിക്കാനും ആശുപത്രി കളിൽ പ്രശ്നപരിഹാര സെൽ രൂപീകരിക്കാനും ചർച്ചയിൽ ധാരണയായി ബംഗാളിലെ ഡോക്ടർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഡോക്ടർമാർ നടത്തിയ സമരവും പിൻവലിച്ചു ആശുപത്രികൾക്ക് നേരെയുണ്ടാകുന്ന അക്രമങ്ങൾ തട യുന്നതിന് ശക്തമായ ദേശീയ നിയമം ആവശ്യമാണെന്ന് ഐഎംഎ ദേശീയ എത്തിക്സ് കമ്മിറ്റി കൺവീനർ ഡോ ശ്രീകുമാർ വാസു ദേവൻ തല ശ്ശേരിയിൽ പറഞ്ഞു

കുട്ടികളുടെ മരണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്രമന്ത്രി ഡോ ഹർഷ് വർധൻ ബീഹാറില്ലേക്ക് വീണ്ടും ഉന്നതതല ഗവേഷണ സംഘത്തെ അയച്ചു അതിനിടെ മസ്തിഷ്ക ജ്വരം ബാധ്യിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും ബീഹാർ ഗവൺമെന്റിനും നോട്ടീസ് അയച്ചു സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ് മേഖലയിൽ കാലാനുസൃ തമായ മാറ്റങ്ങൾ നടത്തിവരികയാണെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ അറിയിച്ചു പുതിയ കാലത്തെ ആവശ്യ ങ്ങൾക്കനുസരിച്ച് സർവകലാശാലകളിൽ പുതിയ കോഴ്സു കൾ ആരംഭിച്ചുകഴിഞ്ഞു ചട്ടപ്പടി കോഴ്സുകൾക്കു പകരം പുതിയവ ആരംഭിക്കുന്നതു വഴി സ്വദേശത്തെയും വിദേശ ത്തെയും തൊഴിലവസരങ്ങൾ നേടാനാവുമെന്ന് അദ്ദേഹം പറ ഞ്ഞു കേരള സർവകലാശാലാ ആസ്ഥാനത്ത് ഡോ

നാരായണൻ സ്മാരക വിദ്യാർത്ഥി സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി അടുത്ത വർഷം മുതൽ ജൂൺ ഒന്നിനു തന്നെ പി ജി ഡിഗ്രി കോഴ്സുകളുടെ ക്ലാസ്സ് തുടങ്ങാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി ഡോ

വിദ്യാർത്ഥികളുടെ ഓൺലൈൻ സേവനങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി ഉദ്ഘാടനം ചെയ്തു

പല പ്രാവശ്യം വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടും സൌമൃ ഒഴിഞ്ഞുമാറിയതായും ഒഴിവാക്കാൻ ശ്രമിച്ചതായും അജാസ് വെളിപ്പെടുത്തി കൊലപാത്രകത്തിനിടെ ഇയാൾക്കും സാരമായി പൊള്ളലേറ്റിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ അക്ഷയ ഊർജ അവാർഡു കൾ ഇന്ന് പ്രഖ്യാപിക്കും ഊർജർഠഗത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വാണിജ്യ വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപന ങ്ങൾക്കും സംഘടനകൾക്കും വ്യക്തികൾക്കു മാണ് അവാർഡ് തിരുവനന്തപുരത്ത് നിയമസഭാ മീഡിയാ റൂമിൽ മന്ത്രി എം

മണിയാണ് അവാർഡ് ജേതാക്കളെ പ്രഖ്യാ പിക്കുന്നത് അരിയിൽ ഷുക്കൂർ വധക്കേസിലെ വിചാരണ എറണാ കുളം പ്രത്യേക സിബിഐ കോടതിയിലേക്ക് മാറ്റി സിബിഐ നൽകിയ ഹരജിയിലാണ് ഹൈക്കോടതി കേസിന്റെ വിചാരണ തലശ്ശേരി കോടതിയിൽ നിന്ന് മാറ്റിയ ത് തലശ്ശേരി കോടതിയിലെ കൊലപാതക കുറ്റപത്രവും രണ്ടാമത് സ്വീകരിക്കാൻ വിസമ്മതിച്ച ഗൂഡാലോചനാ കുറ്റ പത്രവും ഒന്നിച്ച് സിബിഐ കോടതിയിലേക്ക് മാറ്റാനാണ് ഹൈക്കോടതി അനുമതി നൽകിയത്

ഈ ലോകകപ്പിൽ ഷാക്കിബിന്റെ രണ്ടാം സെഞ്ചുറിയാണിത്

ഇന്ന് ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാനെ നേരിടും ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ചത്തെ കായികമത്സരങ്ങൾക്ക് കണ്ണൂരിൽ ഇന്ന് തുടക്കമാവും

മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് ആൺകുട്ടികളുടെയും നാളെ പെൺകുട്ടികളുടെയും വോളി ബോൾ മത്സരം നടക്കും

വരുമാന സർട്ടിഫിക്കറ്റും കർഷകനോ കർഷക തൊഴിലാളിയോ ആണെന്ന് തെളിയിക്കുന്ന രേഖ കൾ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത്

മറയൂരിൽ നിന്ന് കടത്തിയ കോടികളുടെ ചന്ദനം ആന്ധ്ര യിലെ ചിറ്റൂരിൽ നിന്ന് പിടികൂടി

മലപ്പുറം മോങ്ങം സ്വദേശി വില്ലൻ വീട്ടിൽ കുഞ്ഞാപ്പു എന്ന ഷുഹൈ ബിന്റെ ഫാക്ടറിയിൽ നിന്നാണ് ചന്ദനം കണ്ടെടുത്തത് ചന്ദ നമാഫിയക്ക് നേതൃത്വം നല്കിയിരുന്നത് ഇയാളാണെന്ന് വന പാലകർ അറിയിച്ചു കെട്ടിടങ്ങളിലെ തീപിടുത്തം ഉൾപെടെ സംഭവങ്ങളിൽ സുരക്ഷാ നിയമങ്ങൾ അവഗണിക്കുന്നതിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്ന കാര്യത്തിൽ സംസ്ഥാന പൊലീസ് മേധാ വിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ഫയർ ആന്റ് റെസ്ക്യൂ ഡയരക്ടർ ജനറൽ എ ഹേമചന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞു ദുരന്തനിവാരണം സാധൃതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സെമിനാ റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോയമ്പത്തൂരിൽ കഴിഞ്ഞ ദിവസം ഭീകരബന്ധം ആരോ പിച്ച് അറസ്റ്റിലായവർ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടി രുന്നതായി തമിഴ്നാട് പൊലീസ് അറിയിച്ചു

എ കോടതി അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിട്ടു കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാർ നേരിടുന്ന പ്രയാസങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കുമെന്ന് വിമാന ത്താവള ഉപദേശക ബോർഡ് ചെയർമാൻ പി

കുഞ്ഞാ ലിക്കുട്ടി എം

കഴിഞ്ഞ ദിവസം നിര്യാതനായ കോഴിക്കോട് കോർപറേ ഷൻ മുൻ മേയർ കോളിയോട്ട് ഭരതന്റെ മൃതദേഹം ഇന്ന് രാവിലെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും

കോഴിക്കോട്ടെ ന്യൂസ് കേരള പ്രത്രം മാനേജിങ് എഡി റ്ററും വ്യാപാര പ്രമുഖനുമായ വി

ഖബറടക്കം രാവിലെ നാദാപുരം ജുമുഅത്ത് പള്ളി ഖബർസ്ഥാനിൽ ബാലഭിക്ഷാടനത്തിനും കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതിനും എതിരെ തെരുവുബാല്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ഇന്ന് തൊടുപുഴയിൽ കൂട്ടയോട്ടം തൊടുപുഴ ന്യൂമാൻ കോളജിലെ എൻഎസ്എസ് യൂനിറ്റാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

സാംബശിവറാവു അറിയിച്ചു പൈതൃക തെരുവായി പ്രഖ്യാപിച്ച മിഠായിത്തെരുവിൽ വാഹനഗതാഗതം നിയന്ത്രി ച്ചതിനെ തുടർന്ന് വ്യാപാര മാന്ദ്യം ഉണ്ടായതായി കച്ചവട ക്കാർ കലക്ടറുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചിരുന്നു കേര കർഷകരെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തി ലൂടെ വരുമാന വർധനയ്ക്ക് സഹായിക്കണമെന്ന് നാളകേര വികസന ബോർഡ് അധ്യക്ഷ ഉഷാഭായ് ആവശ്യപ്പെട്ടു കാസർകോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നാളി കേര വികസന ബോർഡ് ഉദ്യോഗസ്ഥരുടെ പരിശീലന സമാ പന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റേഷൻ കടകൾ അടച്ചിടും കരിവെള്ളൂർ എൻഎഫ്എസ്എ ഗോഡൌണിലെ കയറ്റിറക്ക് തൊഴിലാളികൾ റേഷൻ വ്യാപാരികളെ മർദ്ദിച്ചതായി ആരോ പിച്ചാണ് പണിമുടക്ക് അക്രമികൾക്കെതിരെ നടപടിയെടു ക്കണമെന്നും റേഷൻ സാധനങ്ങൾ കടകളിൽ തൂക്കിയ ശേഷം ഇറക്കണമെന്നും റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെ ട്ടിട്ടുണ്ട് ബിജെപി തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായിരുന്ന എം